കൂടുതൽ ദേശീയ നേതാക്കൾ സംസ്ഥാനത്തേയ്ക്ക് അവശ്യസർവീസ് വിഭാഗത്തിൽപ്പെട്ടവർക്ക് പോസ്റ്റൽ വോട്ടെടുപ്പ്

പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പരിപാടി

ഇന്ന് ഓശാന ഞായർ ഐ ലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരള എഫ്

ക്ക് കിരീടം ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലെ അവസാന ഏകദിനം ഇന്ന് പൂനെയിൽ

നിർണായകമായതിനാൽ പൊടിപാറുന്ന പ്രചാരണത്തിനാണ് നഗര ഗ്രാമങ്ങൾ സാക്ഷ്യം വഹിക്കുന്നത് രുര എൻ ഡി എ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി കേന്ദ്രമന്ത്രി രാജ്നാഥ് സിങ് സംസ്ഥാനത്തെത്തി

ഉച്ചയ്ക്ക് കോട്ടയത്ത് പതുപ്പള്ളിയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും രാജ്നാഥ് സിങ് പങ്കെടുക്കും എൻ ഡി എ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി എത്തുന്ന കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി ഇന്ന് വൈകീട്ട് കോഴിക്കോട് എലത്തൂരിൽ റോഡ് ഷോയിൽ പങ്കെടുക്കും

എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും പൊളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ടും ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ എൽ

എഫിനായി പ്രചാരണം നടത്തും യെച്ചൂരി കാട്ടാക്കട വാമനപുരം മണ്ഡലങ്ങളിലും വ്യന്ദ കാരാട്ട് പാറശ്ശാല നെടുമങ്ങാട് വർക്കല എന്നിവടങ്ങളിലുമാണ് പ്രചാരണം നടത്തുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോഴിക്കോട് ജില്ലയിൽ എൽ ഡി എഫ് ന്റെ വിവിധ തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ പങ്കെടുക്കും സിപിഐ ദേശീയ സെക്രട്ടറിയേറ്റ് അംഗം അമർജിത് കൌർ കൊല്ലത്ത് ചാത്തന്നൂർ കരുനാഗപ്പള്ളി മണ്ഡലങ്ങളിലെ എൽഡിഎഫ് പരിപാടികളിൽ സംബന്ധിക്കും രും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇന്ന് കൊല്ലത്ത് യു ഡി എഫ് ന്റെ വിവിധ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇന്നലെ കോട്ടയം ഇടുക്കി ജില്ലകളിലെ വിവിധ യുഡിഎഫ് തെരഞ്ഞെടുപ്പ് സമ്മേളനങ്ങളിലും റോഡ് ഷോയിലും പങ്കെടുത്തു രംഭ മറ്റു സംസ്ഥാനങ്ങളിൽ സൌഹൃദത്തിൽ മത്സരിക്കുന്ന ഇടത് വലത് മുന്നണികൾ കേരളത്തിൽ നിഴൽ യുദ്ധം നടത്തുകയാണെന്ന് വിദേശകാര്യ സഹമന്ത്രി വി

തൃത്താല മണ്ഡലത്തിലെ എൻ

എ സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭക്ഷ്യ കിറ്റ് വിതരണത്തിലെ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം ഇടതു മുന്നണി രാഷ്ടീയ പ്രചരണായുധമാക്കുന്നതിൽ മറ്റു ലക്ഷ്യമുണ്ടെന്നും കിറ്റിന്റെ പേരിൽ വോട്ട് തട്ടാൻ നടത്തിയ ശ്രമം പരാജയപ്പെട്ടതിന്റെ നിരാശയിലാണ് അവരെന്നും വി മുരളീധരൻ പറഞ്ഞു രംഭ ഒരാൾക്ക് പ്രതിമാസം ആറായിരം രൂപ വീതം പ്രതിവർഷം എഴുപത്തിരണ്ടായിരം രൂപ അക്കൌണ്ടിലെത്തിക്കുന്ന ന്യായ് പദ്ധതി യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ നടപ്പിലാക്കുമെന്ന് രാഹുൽഗാന്ധി പറഞ്ഞു ദേവികുളം ഇടുക്കി നിയോജകമണ്ഡലം യു

എഫ് സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പു പ്രചാരണാർത്ഥം അടിമാലിയിൽ സംഘടിപ്പിച്ച യോഗത്തിൽ സംസാരിക്കുകയായി രുന്നു അദ്ദേഹം ജനങ്ങൾക്കു വേണ്ടി ദീർഘകാല വീക്ഷണത്തോടു കൂടിയ പദ്ധതികൾ നടപ്പിലാക്കാൻ യു ഡി

സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്നതിൽ എൽ

എഫ് ഗവൺമെന്റിന് പദ്ധതിയൊന്നുമില്ലെന്നും രാഹുൽഗാന്ധി കുറ്റപ്പെടുത്തി രുര സാമൂഹിക സുരക്ഷാ മേഖലയിൽ എൽ

എഫ് ഗവർണ്മെന്റിന്റെ നടപടികൾ സമാനതകൾ ഇല്ലാത്തത് ആണെന്നും രാജ്യത്തു ബി

പിയോ കോൺഗ്രസോ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇത് കാണാൻ ആകില്ലെന്നും സി

എം പോളിറ്റ് ബ്യുറോ അംഗം എസ്

പാലക്കാട് ജില്ലയിലെ വിവിധ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് റാലികളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രുഭ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവശ്യ സർവീസ് വിഭാഗത്തിൽപ്പെട്ടവർക്ക് പോസ്റ്റൽ വോട്ടെടുപ്പ് ഇന്നാരംഭിക്കും ചൊവ്വാഴ്ച വരെ ഓരോ മണ്ഡലത്തിലും ക്രമീകരിച്ച പ്രത്യേക പോസ്റ്റൽ വോട്ടിങ് സെന്ററിലാണ് തപാൽ വോട്ടെടുപ്പ്

അവശ്യ സർവീസ് വിഭാഗത്തിലുള്ളവരും തെരഞ്ഞെടുപ്പ് ദിവസം ഡ്യൂട്ടിയിലുള്ളവരുമായ ജീവനക്കാർക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോസ്റ്റൽ വോട്ട് അനുവദിച്ചിരിക്കുന്നത് ദ്ദേ പൊതു അവധി ദിവസങ്ങളായ ദുഃഖ വെള്ളി ഇൌസ്റ്റർ ദിനങ്ങളിൽ ട്രഷറികൾ തുറന്നു പ്രവർത്തിപ്പിക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചു പരിഷ്കരിച്ച പെൻഷനും ശമ്പളവും തിരഞ്ഞെടുപ്പിന് മുമ്പ് വിതരണം ചെയ്യാൻ വേണ്ടിയാണിത്

രുഭ പാലക്കാട് ജില്ലയിൽ പന്ത്രണ്ട് മണ്ഡലങ്ങളിലും തിരഞ്ഞെടുപ്പ് പ്രചാരണ ചൂടിന് ഒട്ടും കുറവില്ലെങ്കിലും ചിലയിടങ്ങളിൽ അതിന്റെ തീവ്രത കൂടുതലാണ്

ദൂരദർശനും പരിപാടി സംപ്രേഷണം ചെയ്യും

ഐ

പ്രധാനമന്ത്രിയുടെ ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാലുടൻ അതിന്റെ മലയാള പരിഭാഷ ആകാശവാണിയുടെ കേരള നിലയങ്ങളിൽ കേൾക്കാം രാത്രി എട്ടിന് ഇതിന്റെ പുനപ്രക്ഷേപണം ഉണ്ടാകും

വിശുദ്ധ വാരത്തിനു തുടക്കം കുറിച്ച് ലോകമെങ്ങും ക്രൈസ്തവർ ഇന്ന് ഓശാന പെരുന്നാൾ ആഘോഷിക്കുന്നു എളിമയുടെയും ലാളിത്യത്തിന്റെയും പ്രതീകമായ യേശു കഴുതപ്പുറത്തേറി ജെറുസലേമിലെത്തിയതിന്റെ ഓർമ്മ പുതുക്കലാണിത് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചു ക്രൈസ്തവ ദേവാലയങ്ങളിൽ കുരുത്തോല പ്രദക്ഷിണവും പ്രത്യേക പ്രാർത്ഥനയും തിരുക്കർമങ്ങളും നടക്കും അടുത്ത ഞായറാഴ്ചയാണ് ഈസ്റ്റർ

ലീഗ് ഫുട്ബോളിൽ ചരിത്ര നേട്ടവുമായി ഗോകുലം കേരള എഫ്

കൊൽക്കത്തയിൽ ലീഗിലെ അവസാന മത്സരത്തിൽ മണിപ്പൂരിന്റെ ട്രാവുവിനെ ഒന്നിനെതിരെ നാലു ഗോളുകൾക്ക് തകർത്ത് ഗോകുലം ഐ ലീഗ് ഫുട്ബോൾ കിരീടം നേടി ഐ ലീഗ് ചരിത്രത്തിൽ കിരീടം നേടുന്ന കേരളത്തിലെ ആദ്യ ടീമാണ് ഗോകുലം ജയത്തോടെ ഗോകുലം എ

സി കപ്പിന് യോഗ്യത നേടി രുര ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലെ മൂന്നാമത്തെയും അവസാനത്തെയും ഏകദിന ക്രിക്കറ്റ് ഇന്ന് പൂനെയിൽ ഉച്ചകഴിഞ്ഞ് ഒന്നുമുതലാണ് മത്സരം

കോവിഡ് മൂലമുണ്ടായ പ്രതിസന്ധിയെ തുടർന്ന് ഒരു വർഷത്തെ ഇടവേളയ്ക്കു ശേഷമാണ് സംസ്ഥാനത്തെ ബ്ലൈൻഡ് ക്രിക്കറ്റ് മത്സരങ്ങൾ നടക്കുന്നത് രുര ദേശീയ മിനിക്കോയി ഫെസ്റ്റിവലിന്റ ഭാഗമായി പ്രധാനമന്ത്രിയുടെ പേരിലുള്ള ജഹാധോണി വള്ളംകളി മത്സരത്തിൽ ഫുങ്ങിലോർ ജേതാക്കളായി പ്രൈഡ് ഓഫ് ബദൌരി രണ്ടാം സ്ഥാനവും ഫ്യൂരിയോസ് കാന്തി പാർട്ടി മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി

വൈറസ് സ്വാബ് ടെസ്റ്റിംഗ് വാക്സിനേഷൻ ആന്റ് വോട്ട് വിക്റ്ററി ഓവർ വൈറസ് എന്ന സന്ദേശം സമൂഹത്തിന് നൽകുന്ന ക്യാമ്പയിൻ ജില്ലയിൽ കോവിഡ് പരിശോധന നിരക്ക് കുറഞ്ഞ സാഹചര്യത്തിൽ അത് കൂട്ടുന്നതിനും തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് കോവിഡ് വൈറസിൽ നിന്ന് സുരക്ഷിതമായി വോട്ട് ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയുമാണ് നടപ്പാക്കുന്നത്

രും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്വീപ് വോട്ടർ ബോധവത്കരണ പരിപാടിയുടെ ഭാഗമായി മൂന്നാറിൽ പട്ടം പറത്തൽ മേളയ്ക്ക് തുടക്കമായി ജില്ലാ ഭരണകൂടത്തിന്റെയും വൺ ഇന്ത്യാ കൈറ്റ്സിന്റെയും മൂന്നാർ പഞ്ചായത്തിന്റെയും മേൽനോട്ടത്തിലാണ് പട്ടം പറത്തൽ മേള രും തിരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം സ്വീപ് മലപ്പുറവും ടീക് ലാൻഡ് റൈഡേഴ്സും സംയുക്തമായി മലപ്പുറത്ത് ബൈക്ക് റൈഡ് സംഘടിപ്പിച്ചു കരുത്തുറ്റ ജനാധിപത്യത്തിന് സമ്മതിദാനാവകാശ ത്തിന്റെ പ്രാധാന്യം ജനങ്ങളെ ബോധവത്കരിക്കുന്നതിനാണ് സ്വീപിന്റെ നേത്വത്വത്തിൽ ബൈക്ക് റൈഡ് നടത്തിയത്